എസ് സി

പാലാരിവട്ടം മേൽപ്പാലം പാലാരിവട്ടം മേൽപ്പാലം അഴിമതിയിൽ തന്നെ പ്രതിചേർത്തത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്ന് മുൻ മന്ത്രി ഇബ്രാഹിംകുഞ്ഞ് ഇക്കാര്യത്തിൽ അറസ്റ്റ് ഭയപ്പെടുന്നില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു